അടുത്ത ശൈതൃകാല ഷെഡ്യൂൾ മുതൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പ്രതിദിനം മൂപ്പത് വിമാന സർവ്വീസുകൾ കൂടുതലായി ഉണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ സെക്രട്ടറി

പി ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിൽ വൃക്തിഗത ഇനത്തിൽ ഇന്ത്യൻ താരം ശശികുമാർ മുകുന്ദ് ഫൈനലിൽ കടന്നു

സേവാകേന്ദ്രങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണർ സർക്കിൾ ഓഫീസർ തുടങ്ങിയവരുടെ ഓഫീസുകളിലും ഇതിന്റെ പകർപ്പ് ലഭ്യമാണ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട പരാതികൾ ഉള്ളവർക്ക് വിദേശിയർക്കുള്ള് ട്രൈബ്യൂണലിനെ സമീപിക്കാം

പ്ട്ടികയുടെ പുതുക്കൽ നടപടികൾ സുപ്രീംകോടതി വീക്ഷിച്ചൂവരിക്കയായിരുന്നു ദേശീയ പൌരത്വരജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരെ ് ഒഴിവാക്കുകയില്ലെന്നും അവർക്ക് വിദേശീയർക്കുള്ള ട്രൈബ്യൂണലിനെയും ഉയർന്ന കോടതികളെയും സമീപിക്കാളെന്നും സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കി

ജെ

യഥാർത്ഥ ഇന്ത്യൻ പൌരൻമാർ പൌരത്വപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് അസം ബി ജെ പി അദ്ധ്യക്ഷൻ രഞ്ജിത്കുമാർ ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു

രാജ്യം മൊത്തം ഉൾപ്പെടുത്തി ദേശീയ പൌരത്വ പട്ടിക രൂപം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

സൌജന്യമായി ഭക്ഷണം നൽകൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് വോയ്സ് സമഗ്ര പോഷണത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ പദ്ധതിയാണ് പോഷൺ അഭിയാൻ

കഴിഞ്ഞ മാസം പ്രധാനമന്തിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ പോഷണ ദൌർലഭ്യത്തെക്കുറിച്ച് ബോധവർക്കരണത്തിന്റെ അഭാവം മൂലമാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു

രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പോഷകാഹാരമെന്ന സന്ദേശം എത്തിക്കുകയും കുട്ടികൾക്ക് നല്ല ഭക്ഷണവും ചികിത്സയും പ്രതിരോധവും നൽകലുമാണ് പോഷൺ മാ ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ശ്രീ

രാജസ്ഥാനിലെ ഝുൻഝുനുവിൽ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് പോഷൺ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് ആറ് വയസ്സുവരെയുള്ള കുട്ടികൾ കൌമാരക്കാരായ പെൺകുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ പോഷകാഹാര ക്രമത്തിൽ പുരോഗതിയുണ്ടാക്കുക എന്നതാണ് പരിപാടി ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പൊട്ടിത്തെറിയുടെ ഗൌരവ സ്വഭാവം കണക്കിലെടുത്ത് ദേശീയ ദുരന്ത പ്രതിരോധ സേന സംഭവ സ്ഥലത്ത് എത്തി മൃതദേഹങ്ങൾക്കായി തെരച്ചിൽ ആരംഭിച്ചു

അപകടത്തെ തുടർന്ന് ദുരിതത്തിലായവരെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ശ്രീ അമിത് ഷായെ അറിയിച്ചു

കർത്താർപ്പൂർ ഇടനാഴിയുടെ സീറോ പോയിന്റിൽ ഇന്ത്യ പാകിസ്ഥാൻ സാങ്കേതിക സമ്മേളനം നടത്തിയതിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രി ഇക്കാരൃത്തിൽ ഉറപ്പു നൽകിയത്

ഹൈദരാബാദിൽ ബാഡ്മിന്റൺ താരം പി

സിന്ധുവുമായുളള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ആരോഗ്യമുള്ള ഊർജ്ജസ്വലരായ ഈ ചെറുപ്പക്കാരാണ് രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

അടുത്ത ശൈത്യകാല ഷെഡ്യൂൾ മുതൽ കേരളത്തിലെ വിമാനത്താ വളങ്ങളിൽ നിന്ന് പ്രതിദിനും മുപ്പത് വിമാന സർവ്വീസുകൾ കൂടുത ലായി ഉണ്ടാകും തലസ്ഥിന്ത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച വിമാനക്കമ്പനി ്മേധാവികളുടെ യോഗത്തിൽ സിവിൽ ഏവി യേഷൻ സെക്രട്ടറി പ്രദീപ് സിങ് ഖരോളയാണ് ഇക്കാര്യം അറിയിച്ചത് അടുത്ത മൂന്നു മാസത്തിനകം ഇത് നിലവിൽ വരും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് അധികമായി അഞ്ച് സർവ്വീസുകൾ ഉണ്ടാകുമെന്നും ശ്രീ

സെപ്റ്റംബർ മൂന്ന് മുതൽ കേരളത്തിൽ കർശന പരിശോധന പരിപാടി ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി

വാഹന പരിശോധന ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുമെന്നും മന്ത്രി വാർത്താ സമ്മേ ളനത്തിൽ അറിയിച്ചു നാളെ മുതൽ പുതുക്കിയ പിഴ ഈടാക്കും

പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചാൽ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ വാഹന ഉടമയ്ക്കോ എതിരെ നടപടിയുണ്ടാവും

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് വോയ്സ് തീവ്രവാദത്തെ പ്രതിരോധിക്കൽ സൈബർ കുറ്റകൃത്യങ്ങൾ മറ്റ് തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവയാണ് ഇന്റർപോളിന്റെ മൂന്നു പ്രധാന മേഖലകളെന്ന് ഇന്റർപോൾ സെക്രട്ടറി പറഞ്ഞു ന്യൂഡൽഹിയിലാണ് ഇരു നേതാക്കളും ചർച്ച നടത്തിയത് ലഹരി മരുന്ന് വ്യാപാരം അന്താരാഷ്ട്ര തീവ്രവാദം കള്ളപണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പാലിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളെ കുറിച്ച് ശ്രീ

ഇത്തരം ഭീഷണികളെ നേരിടാൻ ഏഷ്യൻ മേഖലയിൽ മാത്രമല്ല ലോകത്തുടനീളം കൃത്യമായ മാർഗ്ഗരേഖ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ

അമിത് ഷാ ജൂർഗെൻ സ്റ്റോക്കിനെ അറിയിച്ചു ഇന്റർപോൾ ഗ്ലോബൽ അക്കാദമിയുടെ പ്രാദേശിക ഹബ്ബായി പ്രവർത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സന്നദ്ധതയും ചർച്ചയിൽ വിശദമാക്കിയിട്ടുണ്ട്

ടി

ചാലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിലെ വ്യക്തിഗത വിഭാഗത്തിൽ ഇന്ത്യൻ താരം ശശികുമാർ മുകുന്ദ് ഫൈനലിൽ പ്രവേശിച്ചു ശശികുമാറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച നേട്ടമാണിത്

ഇതോടൊപ്പം പുരുഷന്മാരുടെ ഡബിൾസ് പ്പിഭാഗത്തിലും ശശികുമാർ മുകുന്ദ് റഷ്യൻ താരം ടെയ്മൂറാസ് ഗബാഷ്വിലി സഖ്യം വിജയം നേടിയിരുന്നു

ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം സ്ഥാനവും കാരിച്ചാൽ ചുണ്ടൻ മൂന്നാം സ്ഥാനവും നേടി

നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലമേള ഉദ്ഘാടനം ചെയ്തു

പണം തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ

വഞ്ചന കളള ആധാരം ഉണ്ടാക്കൽ എന്നീ ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജിതേന്ദ്രസിംഗിനെതിരെ ചുമത്തിയിരിക്കുന്നത്

കേസുമായി ബന്ധപ്പെട്ട് ശിവകുമാറിനെ ഇന്നലെ ഏജൻസി അഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു